കേരളത്തിലും ജനതാ കർഫ്യൂ പൂർണ്ണം

കെ ശൈലജ കോവിഡ് നിയന്ത്രണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മാർഗ്ഗു നിർദ്ദേശം നൽകാൻ കേന്ദ്രം ഉന്നതാധികാര സാങ്കേതിക സമിതി രൂപീകരിച്ചു രാജ്യത്തെ കൊറോണ മരണം അഞ്ചായി

കൊൽക്കത്ത ഡംഡം സെൻട്രൽ ജയിലിൽ സുരക്ഷാ ഉദ്യോഗ സ്ഥരുമായി ഏറ്റുമുട്ടി രണ്ട് വിചാരണ തടവുകാർ മരിച്ചു

മെട്രോ നഗരങ്ങളിലും ഗ്രാമ നഗര ഭേദമില്ലാതെ ഇന്ത്യയിലെ എല്ലാ മേഖലയിലും ജനതാ കർഫ്യൂ പൂർണ്ണമാണ് സാധാരണ ഹർത്താൽ ദിനങ്ങളിൽപ്പോലും ആൾത്തിരക്കൊഴിയാത്ത ഡൽഹിയിലും കൊൽക്കത്തയിലും മുംബൈയിലും മറ്റ് വൻ നഗരങ്ങളിലും നിരത്തുകളും പൊതുസ്ഥലങ്ങളും തീർത്തും വിജനമാണ്

കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ജനങ്ങളും ഭരണ പ്രതി പക്ഷ പാർട്ടികളും ജനതാ കർഫ്യൂവിൽ സ്വമേധയാ പങ്കെടു ക്കുകയാണ് വൈകിട്ട് അഞ്ചിന് കോവിഡിനെതിരെ പോരാ ടുന്ന ആരോഗ്യ പ്രവർത്തകരെയും മറ്റ് സന്നദ്ധ പ്രവർത്തക രെയും ജനങ്ങൾ ആദരവ് അറിയിക്കും രാജ്യത്തെ പ്രമുഖ വ്യക്തികൾ എല്ലാം തന്നെ വീട്ടിൽ തുട രുന്ന ഞായറാഴ്ചയെ പിന്തുണച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ട്വിറ്ററിൽ കുറിച്ചു

അപൂർവ്വം വാഹന ങ്ങളൊഴിച്ചാൽ നിരത്തുകൾ വിജനമാണ് കട കമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു കാൽനടയാത്രക്കാരെപ്പോലും ഒരിടത്തും കാണാനില്ല തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് നഗരങ്ങ ളെല്ലാം ഒരേപോലെ നിശ്ചലമായി

പലയിടത്തും പുറത്തിറങ്ങിയ വാഹനു യാത്രികരെ കോവിഡ് ബാധയുടെ ഗുരുതരാവസ്ഥ പറഞ്ഞ് ബോധ്യപ്പെ ടുത്തി മടക്കിയയച്ചു മാധ്യമ പ്രവർത്തകരുടെയും പൊലീസി ന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും വാഹന്ങൾക്ക് മാത്ര മാണ് വിലക്ക് ബാധകമാവാത്തത്

എസ് ആർ

സി ബസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ആളുകൾ ആരും തന്നെയില്ല ദീർഘദൂരി ട്രെയിനുകളിലെത്തിയ ചിലർ മാത്രം റെയിൽവേ സ്റ്റേഷനിൽ തങ്ങുന്നുണ്ട് തൃശൂരിൽ ജനതാ കർഫ്യൂവിനോട് ജനങ്ങൾ ഐക്യ ദാർഢ്യം പ്രഖ്യാപിച്ച സാഹചര്യമാണുള്ളത് ചിലയിടങ്ങളിൽ പെട്രോൾ പമ്പുകൾ പ്രവർത്തിക്കുന്നത് ഒഴിച്ചാൽ മറ്റ് കടക മ്പോളങ്ങൾ അടഞ്ഞ് കിടക്കുകയാണ് ആരോഗ്യ പ്രവർത്ത കർക്കും സ്ന്നദ്ധ പ്രവർത്തകർക്കുമുള്ള ആദര സൂചകമായി വൈകിട്ട് അഞ്ചിന് സൈറൺ മുഴക്കുമെന്ന് തൃശൂർ മേയർ അറി യിച്ചു കാസർകോട് ജില്ലയിൽ ജനതാ കർഫ്യൂ പൂർണ്ണം

മലപ്പുറത്തും ജനതാ കർഫ്യൂ പൂർണ്ണമാണ്

വയനാട്ടിൽ വാഹനങ്ങൾ ഒന്നും ഓടുന്നില്ല അതിർത്തി ചെക്ക്പോസ്റ്റുകളായ ലക്കിടി മുത്തങ്ങ ബോയ്സ്ടൌൺ നിര വിൽപ്പുഴ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തുന്നു കുട കിൽനിന്ന് വാഹനങ്ങളൊന്നും തന്നെ പ്രവേശിപ്പിക്കുന്നില്ല പാലക്കാട് ജില്ലയിൽ ജനതാ കർഫ്യൂ പൂർണ്ണം വ്യവസായ മേഖലയായ കഞ്ചിക്കോട് ഉൾപ്പെടെ നിശ്ചലമാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ അഗ്നിശമന വിഭാഗം അണുമുക്തമാക്കു കയും ശുചീകരിക്കുകയും ചെയ്തു യാത്രക്കാരുടെ ഇരിപ്പിട ങ്ങളും മേൽപ്പാലത്തിന്റെ കൈവരികളും അണുനാശിനി ഉപ യോഗിച്ച് ശുചീകരിച്ചു കണ്ണൂരിൽ ജനതാ കർഫ്യൂവിന്റെ ഭാഗമായി കടകമ്പോള ങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നു വാഹനങ്ങളും റോഡി ലിറങ്ങിയിട്ടില്ല ജനതാർകർഫ്യൂവിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വ്യവ സായ നഗരമായ കൊച്ചി പൂർണ്ണമായും നിശ്ചലം വാഹനങ്ങൾ ഓടുന്നില്ല കടകമ്പോളങ്ങൾ മുഴുവനും അടഞ്ഞുകിടക്കുന്നു

തോട്ടം മേഖലയിലും കാർഷിക് മേഖലയിലും ജനങ്ങൾ വീടുകളിൽ തന്നെ കഴിയുകയാണ്

അതിർത്തി ചെക്ക്പോസ്റ്റുകളിൽ കർശന പരിശോധനകളു മായി ആരോഗ്യവകുപ്പും പൊലീസും രംഗത്തുണ്ട്

ഇത്തരമൊരു അവസ്ഥ ഒഴിവാക്കാൻ ഗവൺമെന്റ് എല്ലാ ശ്രമങ്ങളും നടത്തി വരികയാണ് നിയന്ത്രണം കൊണ്ടുവന്നിട്ടും പലയിടത്തും രോഗി കളെ ഒളിപ്പിക്കാൻ ശ്രമം നടക്കുകയാണെന്ന് അവർ കുറ്റപ്പെടു ത്തി കൊറോണ നിരീക്ഷണത്തിൽ കഴിയുന്നവർ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ കർശനമായ നിയമ നടപടിയു ണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു വിദേശത്തുനിന്ന് എത്തിയവർ നിയന്ത്രണങ്ങൾ പാലിക്കാതിരുന്നാൽ അവർക്ക് വീണ്ടും വിദേ ശത്തേക്ക് പോകുന്നതിൽ നിയമനടപടികൾ തടസ്സമാകും നാളെ മുതൽ അടിയന്തര ചികിത്സ ആവശ്യമുള്ളവർ മാത്രം ആശുപത്രിയെ സമീപിക്കണം

കെ ശശീന്ദ്രൻ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു

ഓരോ ജില്ലയിൽ നിന്നും അയൽ ജില്ലകളിലേക്ക് സർവീസ് ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു കൊറോണ രോഗ പ്രതിരോധത്തിന്റെ ഭാഗമായി വയനാട് ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ലെങ്കിലും ജാഗ്രത ശക്തമാക്കണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി എ

ആരോഗ്യ പ്രവർത്തകരുടെ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായാണ് നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം കൂടുന്നതെന്നും മന്ത്രി പറഞ്ഞു കൊറോണ രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി വയനാട് കലക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇവിടെനിന്ന് വരുന്ന വാഹനങ്ങൾ കർശന പരിശോധനയ്ക്ക് ശേഷമാണ് കടത്തിവിടുന്നത് ഒരു തഹ സിൽദാരുടെ നേതൃ ത്വത്തിൽ ആരോഗൃ വകുപ്പ് മോട്ടോർവാഹന വകുപ്പ് പൊലീസ് ഫോറസ്റ്റ് എന്നീ വകുപ്പു കളിലെ ജീവനക്കാരും സംയുക്തമായാണ് പരിശോധന നട ത്തുന്നത് അതിർത്തി ഗ്രാമമായ കുടകിലേക്ക് ഇഞ്ചിപ്പണിക്കും മറ്റു മായി വയനാട്ടിൽനിന്ന് പോകുന്ന ഗ്രോത്രവിഭാഗക്കാരെ ഉൾപ്പെടെ അതിർത്തിയിൽ തടഞ്ഞ് തിരിച്ചയക്കുകയാണ്

വലിയപറമ്പ് സ്വദേശികളെയാണ് പടന്ന കടപ്പുറത്തെ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കണ്ടറി സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഐസൊലേഷൻ വാർഡിൽ മാറ്റി യിരിക്കുന്നത്

കൊറോണ ഭീതിയുടെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ അനാവശ്യമായി പ്പാങ്ങിക്കു ട്ടുന്നത് ഒഴിവാക്കണമെന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ ടി

വയനാട് ജില്ലയിലെ കൊറോണ് രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് രാഹുൽഗാന്ധി എം പി അനുവദിച്ച തെർമൽ സ്കാനറുകൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറി

കൊറോണ ബാധയ്ക്ക് സാധ്യതയുള്ളവരെ വീടുകളിൽ ഐസൊലേഷ നിലേക്ക് അയക്കാനും നിലവിലെ ഗവൺമെന്റ് സംവിധാനം മതിയാകാതെ വരുന്ന സാഹചര്യത്തിലാണ് സ്ഥകാര്യ ആംബു ലൻസുകൾ ഉപയോഗപ്പെടുത്തുക

കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി യുടെ നിർദ്ദേശ പ്രകാരമാണ് നടപടി രാജ്യത്തെ കോവിഡ് നിയന്ത്രണ പ്രതിരോധ പ്രവർത്തന ങ്ങൾക്ക് മാർഗ്ഗ നിർദ്ദേശം നൽകാൻ കേന്ദ്രം പൊതുജനാരോഗ്യ വിദഗ്ദ്ധരുടെ ഉന്നതാധികാര സാങ്കേതിക സമിതി രൂപീകരിച്ചു

കേരളത്തിലെ അഡീഷണൽ ചീഫ് സെക്ര ട്ടറി ഡോ

മുംബൈയിൽ കോവിഡ് ബാധിച്ച് ഒരാൾക്കൂടി മരിച്ച തോടെ രാജ്യത്തെ കൊറോണ മരണം അഞ്ചായി

ഇതോടെ മഹാരാഷ്ട്രയിലെ കോവിഡ് മരണം രണ്ടായി

ബി എസ് ഇ സൌജന്യ ഹെൽപ് ലൈൻ ആരംഭിച്ചു

കൊൽക്കത്തയിലെ ഡംഡം സെൻട്രൽ ജയിലിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുണ്ടായ സംഘർഷത്തിൽ രണ്ട് വിചാരണ തടവുകാർ മരിച്ചു സംഘർഷത്തെത്തുടർന്ന് പൊലീസ് വെടി വെയ്പിലാണ് മരണം